ബാധയുടെ സാഹചരൃത്തിൽ ബംഗ്ലാദേശ് സ്ഥാപക പ്രസിഡന്റ് ഷെയ്ഖ് മുജിബുർറഹ്മാന്റെ നൂറാം ജന്മവാർഷിക ആഘോഷം മാറ്റിയതിനെ തുടർന്നാണ് തീരുമാനം

കൊറോണ വൈറസ് പ്പടരാതിരിക്കാൻ സാധ്യമായ എല്ലാ ന് നടപടികളും എടുത്ത് വരികയാണെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷവർദ്ധൻ

സി മേരികോമും ലോക ഒന്നാം നമ്പർ താരം അമിത് പൻഗലും

ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനവും മാറ്റി വച്ചിട്ടുണ്ട് കൊറോണയുടെ പശ്ചാത്തലത്തിൽ പൊതുപരിപാടികൾ മാറ്റിവയ്ക്കുന്നതായി ബംഗ്ലാദേശിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വക്താവ് രവീഷ് കുമാർ അറിയിച്ചു

എ മാർ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കടന്നതോടെ മധ്യപ്രദേശിലെ കോൺഗ്രസ്സ് സർക്കാർ പ്രതിസന്ധിയിലായി

അഞ്ച് മന്ത്രിമാരടക്കം കാണാതായുപ്പു് എം

എ മാരും മുൻ കോൺഗ്രസ്സ് എം പി ജ്യോതിരാദ്ദിത്യ സിന്ധ്യയെ പിന്തുണയ്ക്കുന്നവരാണ്

സംസ്ഥാനത്തെ ഡ്ര്ഹ്ഹ്ചര്യം വിശദീകരിക്കാൻ മുഖ്യമന്ത്രി കമൽനാഥ് കോൺഗ്രസ്സ് അദ്ധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചിരുന്നു

ഇന്നലെ രാത്രി വൈകി വിളിച്ചു ചേർത്ത മന്ത്രിസഭാ യോഗത്തിലാണ് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ചത്

മുഖ്യമന്ത്രി കമൽനാഥിൽ വിശ്വാസം പ്രകടിപ്പിച്ചാണ് ഇവർ രാജിക്കത്ത് കൈമാറിയത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി വനംമന്ത്രി ഉമാങ് സിംഗാർ പറഞ്ഞു അതേസമയം പ്രതിപക്ഷമായ ബിജെപി ഇന്ന് വൈകിട്ട് എം

ശിവരാജ് സിങ് ചൌഹാനെ നിയമസഭാ കക്ഷിനേതാവായി തെരഞ്ഞെടുത്തേയ്ക്കുമെന്നാണ് സൂചന

പി യുടെ രണ്ടും സമാജ് വാദി പാർട്ടിയുടെ ഒന്നും എം

എ മാരും നാല് സ്വതന്ത്രരും കോൺഗ്രസ്സ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസ്സ് ബിജെപി അംഗങ്ങളുടെ മരണത്തെ തുടർന്ന് രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്

അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുള്ള പ്രവർത്തനവും ബോധവത്കരണവുമാണ് വേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു ഡെൽഹി ലെഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

ഇറാനിൽ കുടുങ്ങിക്ടിട്ടക്കുന്ന വിദ്യാർത്ഥികളെ ഉടൻ തിരികെ എത്തിക്കുമെന്ന് മന്ത്രി ഉറപ്പ് ജ്ജ്ജ്കി കൊറോണ വൈറസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇറാനിൽ അക്പ്പെട്ട് പോയ മക്കളെ എത്രയും വേഗം നാട്ടിൽ എത്തിക്കാന്മൂള്ള നുടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബാംഗങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യമന്ത്രി കൂടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്

കൂടാതെ ചൈനയിലേക്ക് ആവശ്യമായ മരുന്നുകളും വിമാനമാർഗ്ഗും അയച്ചു

ഡൽഹി പഞ്ചാബ് ഉത്തർപ്രദേശ് ജമ്മു എന്നിവിടങ്ങളിലാണ് മറ്റ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കർണ്ണാടകത്തിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തിയെങ്കിലും ആരോഗ്യമന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല

രോഗം സംശയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി

മാസ്ക്കുകളുടെ വില കൂട്ടുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്ക്കി

രാജീവ് ഗൌബ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിമാനത്താവളങ്ങളിൽ എഴുന്നൂറോളം പേരെ പരിശോധിച്ചതായി ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടർ എസ് ലക്ഷ്മണൻ ആകാശവാണിയുടെ സംവാദ പരിപാടിയിൽ പറഞ്ഞു

അയൽരാജ്യങ്ങളിൽ നിന്നുള്ള വൈറസ് ബാധ തടയാൻ അതിർത്തിയിലെ റോഡുകളിലും മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതായി അദ്ദേഹം പറഞ്ഞു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമൂന്യി അമിത് ഷാ മറ്റ് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി അധ്യക്ഷ്ൻ ജെ്

അഞ്ച് കമ്പനികളോടൊപ്പം റാണാ കപൂർ ഭാര്യ ബിന്ദു അവരുടെ പെൺമക്കളായ റോഷ്നി രാഖി രാധ എന്നിവരെയും പ്രതികളായി ചേർത്തിട്ടുണ്ടെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ അറിയിച്ചു

സി മേരികോമും ലോക ഒന്നാം നമ്പർ താരം അമിത് പൻഗൽ എന്നിവർ ഒളിമ്പിക്സ് ബോക്സിങ്ങിന് ബെർത്ത് ഉറപ്പിച്ചു ജോർദ്ദാനിലെ അമ്മാനിൽ നടക്കുന്ന ഏഷ്യൻ യോഗ്യതാ മത്സരങ്ങളുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെയാണ് മേരികോമും അമിതും ഒളിമ്പിക് യോഗൃത ഉറപ്പിച്ചത്

മുൻ ഒളിമ്പിക് യൂത്ത് ചാമ്പ്യൻ യുവാൻ ചാങ്ങ് ആണ് സെമിയിൽ എതിരാളി

എഫ് ജവാന്മാർ കൊല്ലപ്പെട്ട പുൽവാമ ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് ഇവർ സഹായം എത്തിച്ചുകൊടുത്തതായി കരുതുന്നു ഇവർക്കെതിരെ ത്രാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർ അന്വേഷണം നടന്നുവരികയാണ് അതേസമയം ഇന്നലെ ഷോപ്പിയാൻ ജില്ലയിലെ റെബാൻ ഗ്രാമത്തിൽ നടന്ന ഏറ്റുമുട്ടലിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു

നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ അങ്കണത്തിലാണ് പ്രദർശനം

വിദേശ സ്ഥാനപതികൾ നയതന്ത്ര പ്രതിധികൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു

എന്നാൽ എതിരാളിയായ അബ്ദുള്ള അബ്ദുള്ള തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യുകയും നൂറുകണക്കിന് അനുയായികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാന്തരമായ മറ്റൊരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു